മീറ്ററാണ് ഉയർത്തുന്നത്

നാല് മണിക്കൂർ ഷട്ടർ തുറക്കാൻ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രവർചേർന്ന അടിയന്തരയോഗമാണ് കെ എസ് ഇബിക്ക് അനുമതി നൽകിയത്

വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് അതിവേഗം ഉയരുകയായി രുന്നു

ദുരന്തനിവാരണ സേനയുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല മന്ത്രി ഇ ചന്ദ്രശേഖരനെ ഏൽപിച്ചിട്ടുണ്ട്

മലപ്പുറം കോഴി ക്കോട് വയനാട് ഇടുക്കി ജില്ലകളിലേക്ക് സൈന്യം നീങ്ങിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അവലോ കന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ അറി

വയനാട്ടിൽ കുടുങ്ങി പോയവരെ ഹെലികോപ്ട റിൽ രക്ഷപ്പെടുത്തു മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സൈന്യത്തിന് ആവശ്യമായ രക്ഷാഉപകരണങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കരിപ്പൂരിലും കൊച്ചിയിലുമെത്തിക്കും ഇടുക്കി കക്കി ഡാമുകൾ തുറക്കേണ്ട സാഹചര്യ മാണ് നിലവിലുളളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കക്കി ഡാം തുറന്നാൽ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനത്തെ സാഹചര്യം അതീവ ഗൌര വമേറിയതാണെന്ന് അദ്ദേഹം വില്യിരുത്തി ജില്ലകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുമ്പില്ലാത്ത വിധം ശക്തമായ മഴ തുടരുകയാണ് രണ്ടു ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്ന റിയിപ്പ്

വിവിധ ജില്ലകളിലായി ഏഴ് പേരെ കാണാ തായി വടക്കൻ കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും അതിശക്തമായ മഴ തുടരുകയാണ് നിലമ്പൂർ ആഢ്യൻപാറയ്ക്ക് സമീപം ചെട്ട്യാൻപാറ യിൽ ഉരുൾപൊട്ടി കാണാതായ ആറ് പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു പറമ്പാടൻ കുഞ്ഞി മരുമകൾ ഗീത അവ രുടെ മക്കളായ നവനീത്നിവേദ് കുഞ്ഞിയുടെ സഹോ ദരീപുത്രൻ മിഥുൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെ ത്തി

നാട്ടുകാരും പോത്തുകൽ പൊലിസും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് നിലമ്പൂർ ടൌണിൽ വെളളം കയറിയതിനാൽ ഫയർഫോഴ്സിന് അപകടസ്ഥലത്തെത്താനായിട്ടില്ല കോളനിയിലെ അഞ്ചു വീടുകൾ പൂർണമായും മണ്ണിനടിയിലായി ബുധനാഴ്ച രാത്രിയോടെയാണ് ഉരുൾപ്പൊട്ടിയത് നിലമ്പൂർ ടൌണും പരിസരങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഇടുക്കി അടിമാലി എട്ടുമുറിയ്ക്ക് സമീപം ഉരുൾപൊട്ടി അഞ്ച് പേരാണ് മരിച്ചത് പുതിയകുന്നേൽ ഹസൻകുട്ടിയുടെ ഭാര്യയും മകനും മരുമകളും പേരക്കു ട്ടികളുമാണ് മരിച്ചത് ഇവർ താമസിച്ചിരുന്ന വീടിന് മുക ളിലേക്ക് മലയുടെ ഒരു ഭാഗത്തെ മണ്ണിടിഞ്ഞ് വീഴുക യായിരുന്നു രണ്ടു പേരെ രക്ഷപ്പെടുത്തി ഹസൻകു ട്ടിയും ബന്ധുവായ മറ്റൊരാളുമാണ് ആശുപത്രിയിൽ കഴി യുന്നത്

പുല്ലൂരാം പാറ തിരുവമ്പാടി കൂടരഞ്ഞി കണ്ണപ്പൻകുണ്ട് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു തിരുവമ്പാടി ആനക്കാംപൊയി ലിനടുത്ത് മറിപ്പുഴയിൽ ഉരുൾപൊട്ടി

മുത്തപ്പൻപുഴ കരിമ്പ് തിരുവമ്പാടി ടൌണുകളിൽ വെള്ളം കയറി മലയോരമേഖല ഒറ്റപ്പെട്ട നിലയിലാണ്

അരീക്കോടി നെയും മൂർക്ക നാടി നേയും ബന്ധിപ്പിക്കുന്ന ചാലിയാറിന് കുറുകെയുളള നടപ്പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി

പ്പൊലീസും നാട്ടു കാരും രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്

മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം വയനാട് ജില്ല ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് താമരശ്ശേരി കുറ്റ്യാടി പാൽച്ചുരം പാതകളിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ചുരങ്ങളിൽ പലയി ടത്തും കല്ലും മണ്ണും ഒഴുകിയെത്തി ഗതാഗതം പൂർണ മായി സ്തംഭിച്ചിരിക്കുകയാണ് വൈത്തിരിയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടി മക്കിമല യിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരു വീട്ടിലെ രണ്ട് പേരെ കാണാതായി

അഞ്ഞൂറോളം കുടുംബങ്ങളെ ഇവിടങ്ങളിൽ മാറ്റി പാർപ്പിച്ചു

ഇവർക്കായി നാട്ടുകാർ തെരച്ചിൽ തുടരുകയാണ്

ഉരുൾപൊട്ടലും മഴകെടുതിയും ഉണ്ടായ പ്രദേശങ്ങളിൽ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുൻ കരുതൽ നടപടികൾക്കും തദ്ദേശസ്ഥാപനങ്ങൾ മുൻകയ്യെടുക്കണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് കെ

രക്ഷാപ്രവർത്തനങ്ങൾക്കും ജനങ്ങളെ മാറ്റിപ്പാർപ്പി ക്കുന്ന തടക്കം കാര്യങ്ങൾക്കും വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടപടികൾക്ക് നേതൃത്വം നൽകണമെന്നും അദ്ദേഹം തദ്ദേശസ്ഥാപന മേധാവി കളോട് നിർദേശിച്ചു കാലവർഷ കെടുതിയിൽ വൻ നാശനഷ്ടമുണ്ടായ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ഇന്ന് കേന്ദ്ര സംഘം സന്ദർശിക്കും രാവിലെ ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തിയ ശേഷം കട്ടിപ്പാറയിലെ കരിഞ്ചോല മല വയനാട് ചുരം റോഡ് കോടഞ്ചേരി തിരുവമ്പാടി മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക

സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി കോൺഗ്ര സിലെ ബി കെ ഹരിപ്രസാദിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്

ബിജു ജനതാ ദളും ടി ആർ എസും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ചെയ് തു

സഭ സമ്മേളിച്ചയുടൻ സ്പീക്കർ ശ്രീമതി സുമിത്രാമഹാ ജൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ സഭയിൽ അനു സ്മരിച്ചു സ്വാതന്ത്ര്യത്തിന് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്ര കാരം ആയിരങ്ങൾ പങ്കെടുത്ത ക്വിറ്റ് ഇന്ത്യാ പ്രക്ഷോഭത്തിന് പ്രത്യേക പ്രാധാനൃ മുണ്ടെന്ന് സ്പീക്കർ പറിഞ്ഞു

ഈ പ്രക്ഷോഭമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ത്തിന് കാരണമായതെന്നും സ്പീക്കർ പറഞ്ഞു മഹാ ത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമരത്തിനും ജീവൻ ബലി യർപ്പിച്ചവർക്കും ആദരസൂചകമായി സഭാംഗങ്ങൾ അല്പനേരം മൌനം ആചരിച്ചു ലലലലലലലലലലലല ഇന്ത്യാ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇംഗ്ലണ്ടിലെ ലോഡ്സിൽ ഇന്ന് തുടങ്ങും ഒന്നാം ടെസ്റ്റിൽ വിജയിച്ച ഇംഗ്ലണ്ടിനെതിരെ വിജയിക്കാനുറച്ചാണ് ടീം ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങുന്നത് ബാറ്റിംഗ് ശക്തിപ്പെടുത്തി വെല്ലു വിളി ഉയർത്താനാവും നായകൻ വിരാട് കോഹ്ലിയുടെ ശ്രമം

മുംബൈ ക്രിക്കറ്റ് അസോസി യേഷൻ വിധർഭ റെയിൽവെ എന്നിവയ്ക്കും പൂർണ അംഗത്വം നല്കി ലോധ പാനൽ തയ്യാറാക്കിയ ഭരണ ഘടന ചില ഭേദഗതികളോടെയാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നാംഗ ബെഞ്ച് അംഗീക രിച്ചത് ഒരു സംസ്ഥാനത്തിന് ഒരു വോട്ട് എന്ന ലോധ പാനലിന്റെ ശുപാർശ സുപ്രീംകോടതി ഒഴിവാക്കി

സഹകരണ സംഘം വഴിയുളള പെൻഷൻ വിതരണമാണ് ആദ്യം ആരംഭിക്കുക

ലലലലലലലലലലലല യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് വധക്കേ സിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാ വശ്യപ്പെട്ട് കണ്ണൂർ ഡി സിസി പ്രസിഡണ്ട് സതീശൻ പാച്ചേനിയുടെ നിരാഹാരസമരം ആരംഭിച്ചു

സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജ യൻ നിർവഹിക്കും